സംസ്ഥാനത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

സംസ്ഥാനത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും കൂടുതൽ വിശദാംശങ്ങളുമായി പ്രിയ

രാസവളത്തോടൊപ്പം പ്രകൃതിവാതകവും പ്താന്റിൽ ഉല്പാദിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് തുടർന്ന് ഝർസൂഗുഡയിൽ വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ഒഡീഷയുടെ പടിഞ്ഞാറൻ മേഖലയെ ചെയ്യും ഇന്ത്യയുടെ വ്യോമയാന ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പുതിയ വിമാനത്താവളം ഉഡാൻ പദ്ധതിക്കു കീഴിലാണ് വിമാനത്തവളം നിർമ്മിച്ചിരിക്കുന്നത് ജർജൻബാഹൽ കൽക്കൂരിപ്പാടം ഝർസുഗുഡ ബാരാപലി സർദേഗ റെയിൽപാത്യ കൃഷ്ണിവയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും

തുടർന്ന് പൊതു സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂന്നു ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ബിഷപ്പിനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി ഇന്ന് പാലാ മജിസ്ട്രേറ്റിനു മുമ്പാകെ ബിഷപ്പിനെ ഹാജരാക്കും എന്നാണ് റിപ്പോർട്ട് അതിനിടെ അർദ്ധരാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തുടർന്ന് ബിഷപ്പിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു

അന്വേഷണ സംഘം ഇന്നലെ കുറവിലങ്ങാട്ടെ മഠത്തിൽ എത്തി പരാതിക്കാരിയായ കന്യാസ്ത്രീയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു

അടുത്ത വർഷം മുതൽ ആദായ നികുതി റിട്ടേൺസ് സമർപ്പിക്കാൻ നടപ്പാക്കുന്ന പുതിയ സോഫ്റ്റ് വെയറിന്റെ സാങ്കേതികവശങ്ങൾ യോഗം ചർച്ചചെയ്യും

റ്റി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സാമ്പത്തിക വെല്ലുവിളികൾ ഒരുപരിധിവരെ പരിഹരിക്കാൻ മന്ത്രിതല കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതായി അധികൃതർ വിലയിരുത്തി

പദ്ധതിയുടെ ദേശീയതല ഉദ്ഘാടനം പ്രധാനമന്ത്രി നീരേന്ദ്രമോദി നാളെ റാഞ്ചിയിൽ നിർവ്വഹിക്കും

ഇതിലൂടെ പത്തുകോടി കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും അഞ്ചു ലക്ഷം രൂപ വീതമുള്ള ആരോഗ്യ സൂരക്ഷ ഉറപ്പാക്കും ഇതോടൊപ്പം ചായ്ബാസയിലെയും കൊഡെർമയിലെയും മെഡിക്കൽ കോളേജുകൾക്കും അദ്ദേഹം തറക്കല്ലിടും പത്ത് ആരോഗ്യ ഭദ്രത കേന്ദ്രങ്ങളും ഉദ്ഘാടനം ചെയ്യും

ഡോളറിലെത്തി

ഓഹരി വിപണികളിലെ പങ്കാളികളാകാനുള്ള യോഗൃതകളുടെ മാനദണ്ഡങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഓഹരികളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നവരുടെ വിവരങ്ങളടങ്ങിയ പട്ടിക വിദേശനിക്ഷേപകർക്ക് ലഭ്യമാക്കും

ഇത് സംബന്ധിച്ച് കേന്ദ്രഗവൺമെന്റ് ഉടൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് ടെലികോം സെക്രട്ടറി അരുണാസുന്ദര രാജ് ബംഗളൂരുവിൽ അറിയിച്ചു രാജ്യത്തിന്റെ വ്യോമയാനപരിധിക്ക് കീഴിൽ യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ യാത്രക്കിടെ ഫോൺ വൈ ഫൈ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതുവഴി വരുമാനം വർദ്ധിപ്പിക്ക്ട്ടാനാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ആഭ്യന്തര വിദേശ പ്പ്യോമയാന സർവ്വീസുകളിൽ സേവനം ലഭ്യമാകും

വിമാനത്തിന്റെ ക്യാബിനകത്ത് വായുസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള സ്വിച്ച് ഓൺ ചെയ്യാൻ ജെറ്റ് എയർവേസിലെ ജോലിക്കാർ മറന്നതിനെ തുടർന്നാണ് സംഭവം ഉണ്ടായത് വിമാന അപകടങ്ങൾ പരിശോധിക്കുന്ന ബ്യൂറോ ജെറ്റ് എയർവെയ്സിൽ നടന്ന സംഭവം അന്വേഷിക്കും ഇതിന് പുറമെ സ്വതന്ത്ര അന്വേഷണം നടത്താനും സമഗ്രമായ സുരക്ഷ ഓഡിറ്റ് പദ്ധതി തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്

നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ പത്തൊൻപതാമത് ബിരുധദാനചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല ഉൾനാടൻ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ലെന്നും ഇതിനുമാറ്റം വരുത്താൻ ഡോക്ടർമാർ ഗ്രാമീണമേഖലിയിൽ കൂടുതൽ സേവനം നടത്താൻ തയ്യാറാവണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

ബോട്ടുടമയെ കസ്റ്റഡിയിൽ എടുക്കാൻ പ്രസിഡന്റ് ജോൺ മഗുഫുലി ഉത്തരവിട്ടു

ബോട്ടിൽ ഉൾക്കൊള്ളാവുന്നതിനും ഇരട്ടിയിലധികം ആളുകൾ കയറിയതാണ് അപകടകാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് രാജ്യത്ത് നാല് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു

സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇന്നലെ ശക്തമായി അപലപിച്ചു ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത്തരത്തിൽ പാർപ്പിച്ചിട്ടുള്ളത് എന്ന് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ സംസാരിക്കവേയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്

ന്യൂഡെൽഹിയിലെ ഇന്ദിരാഗന്ധി ഇന്റോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പന്ത്രണ്ട് രാജൃങ്ങൾ പങ്കെടുക്കുന്നുണ്ട്

ദുബായിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ ബംഗ്ലാദേശിന് അടിപതറുകയായിരുന്നു

സൂപ്പർഫോറിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ നാളെ പാക്കിസ്ഥാനെ നേരിടും ഇന്നലെ അബുദാബിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്സ്ഥാനെ ദ വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചു